യുടെ ദേശീയ എണ്ണക്കമ്പനി നിക്ഷേപം നടത്തും തീരുമാനം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്രം പ്രഖ്യാപിച്ച കർഷക സഹായധനത്തിന്റെ ആദൃഗഡു തിര ഞ്ഞെടുപ്പിന് മുമ്പ് നൽകുമെന്ന് കൃഷിമന്ത്രാലയം സംസ്ഥാനത്ത് സൌരോർജ്ജത്തിൽനിന്ന് ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം

തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ

കേരള സംരക്ഷ ണയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും

ജെ

യുടെ ക്ലസ്റ്റർ യോഗങ്ങൾക്കും ഇന്ന് തുടക്കം

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുഡ്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണേറ്റ ഡിന് ജയം കൊച്ചിയിലെ നിർദ്ദിഷ്ട പെട്രോ കെമിക്കൽ കോംപ്പക്സിൽ യു

യുടെ ദേശീയ എണ്ണക്കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽക്കമ്പനി നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ചു അബുദാ ബിയിൽ യു

സുൽത്താൻ അഹമ്മദ് അൽ ജാബറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്

ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനം നാളെയും മറ്റന്നാളും ദുബൈയിൽ നടക്കും

സ്പീക്കർ പി

പ്രവാസി തൊഴിൽ മേഖലയെ കുറിച്ച് പ്രത്യേക സമ്മേളനവും ഇതോടൊപ്പം ചേരുന്നുണ്ട് ഇടക്കാല ബജറ്റിൽ കേന്ദ്രഗവൺമെന്റ് പ്രഖ്യാപിച്ച കർഷക സഹാ യധനത്തിന്റെ ആദൃഗഡുവായ നാലായിരം രൂപ ലോക്സഭാ തിരഞ്ഞെ ടുപ്പിന്മുമ്പ് നൽകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറി യിച്ചു

ഊർജ്ജോൽപ്പാദനത്തിൽ പിന്നിൽനിൽക്കുന്ന കേരളത്തിൽ സൌരോർജ്ജത്തിൽനിന്ന് ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പി ക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം

ജലവൈദ്യുത പദ്ധതികൾകൊ ണ്ടുമാത്രം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഊർജ്ജോൽപ്പാദനത്തിന് ബദൽ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് കൊച്ചിയിൽ ഗ്രീൻപവർ എക്സ്പോ ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി പറ ഞ്ഞു

എസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പൊതുഭരണവകുപ്പാണ് ഉത്തര വിറക്കിയത് പാലക്കാട് എസ്

ദേബേഷ് കുമാർ ബെഹ്റയെ കെ

സാബു പി

പാല ക്കാട് എസ് പിയാകും കാസർകോട് എസ്

ശ്രീനിവാസ് കാസർകോട് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പിയാകും അടൂർ കെ

അശോകിനെ കൊല്ലം റൂറൽ എസ്

സ്ഥാനത്തുനിന്ന് തിരുവനന്തപുരം റൂറൽ എസ്

കോഴിക്കോട് റൂറൽ എസ്

ജമാലുദ്ദീൻ കോഴിക്കോട് ഡി സി

യാകും

കമാൻഡന്റ് യു അബ്ദുൾകരീമിനെ കോഴിക്കോട് റൂറൽ എസ്

യായി നിയമിച്ചു

സുധാകരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലെയ്വിന് തിരുവനന്തപുരം കനക ക്കുന്നിൽ നാളെ തുടക്കമാകും മറ്റന്നാൾ ഗവർണർ ജസ്റ്റിസ് പി

ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ വിപുലപ്പെടുത്തുക അന്താരാഷ്ട്രതലത്തിൽ ശ്രദ്ധ കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കോൺക്ലെയ്വ് സംഘ ടിപ്പിക്കുന്നത് ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നിവയുടെ വിവിധ ചികിത്സാ രീതികൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ കോൺക്ലെയ്വിൽ പദ്ധതികൾ ആവിഷ്കരിക്കും

എഫ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ വൈകിട്ട് നാലിന് പൂജപ്പുര മൈതാനിയിൽ സി

കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻമേഖലാ ജാഥ മറ്റന്നാൾ സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കാസർകോട്ട് മഞ്ചേശ്വരത്ത് ഉദ്ഘാടനം ചെയ്യും അടുത്തമാസം രണ്ടിന് മഹാറാലിയോടെ തൃശൂരിൽ ജാഥകൾ സമാപിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ബി

യുടെ ക്ലസ്റ്റർ യോഗങ്ങൾക്ക് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡ ലങ്ങൾ ചേർന്ന തിരുവനന്തപുരം ക്ലസ്റ്ററിന്റെ ശക്തികേന്ദ്ര യോഗം ഉച്ചയ്ക്ക് കുമ്പഴയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും

മുഖ്യമന്ത്രി പ്രതിപക്ഷനേതാവ് സ്പീക്കർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശ ഇന്നലെ ഗവർണർ ജസ്റ്റിസ് പി

ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് പയസ് കുര്യാക്കോസും ഉപ ലോ കാ യു ക്ത യാ യി രു ന്ന ജസ്റ്റിസ് കെ

രാമചന്ദ്രനും വിരമിച്ച ഒഴിവിലാണ് നിയമനം ഭരണ നിർവഹണ കാര്യങ്ങളിൽ ജനങ്ങളുടെ പരമാധികാരം ഉറപ്പു വരുത്തണമെന്ന് സംസ്ഥാന ഭരണപരിഷ്കാര കമ്മിഷൻ ചെയർമാൻ വി

ജനാധിപത്യ വൃവസ്ഥയിൽ ജന ങ്ങളാണ് പരമാധികാരികളെങ്കിലും പലപ്പോഴും ഭരണനിർവഹണ കാര്യ ങ്ങളിൽ ജനങ്ങൾക്ക് ആ പരമാധികാരം പ്രയോജനപ്പെടുത്താൻ കഴിയു ന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് ബത്തേരിയിൽ പൌര കേന്ദ്രീ കൃത സേവനങ്ങൾ സംബന്ധിച്ച് ഭരണപരിഷ്കാര കമ്മിഷൻ ഹിയറിങിൽ സംസാരിക്കുകയായിരുന്നു വി

വി ഐ

സക് സേനയുടെ ജാമ്യാപേക്ഷയിൽ ഡൽഹി കോടതി ഇന്ന് വാദം കേൾക്കും ആരോഗ്യപരമായ കാരണങ്ങൾ കാണിച്ചാണ് സക്സേന ജാമ്യാപേക്ഷ നൽകിയത്

വോട്ടെണ്ണൽ നാളെ നടക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട് ബോളിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വിജയം

ആൺകുട്ടികളുടെ ദേശീയ സീനിയർ സ് കൂൾ അത്ലറ്റിക് മീറ്റ് നാളെ ഗുജറാത്തിലെ നദിയാദിൽ തുടങ്ങും മീറ്റിൽ പങ്കെടുക്കുന്നതിനായി കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻമാരായ കേരള ടീം ഇന്ന് നദിയാദിലെത്തും

യൂത്ത് ലീഗ് പ്രവർത്തകൻ തളിപ്പറമ്പ് പട്ടുവം അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി ബി ഐ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം ഇന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും

എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി

രാജേഷ് എം

എ എന്നിവരുൾപ്പെടെ ആറുപേർക്കെതിരെ വധഗൂഢാലോചനകുറ്റം ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്

കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നതെന്ന് മന്ത്രി കെ ടി

കേരള സ്റ്റേറ്റ് സിപിൽ സർവീസ് അക്കഡാമി കൊല്ലം ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കരിക്കോട് ടി

ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയശേഷം മെച്ചപ്പെ ട്ടതായി മന്ത്രി ജി

പത്തനംതിട്ട ആറന്മുള ആഞ്ഞി ലിമൂട്ടിൽകടവ് പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽവന്നശേഷം ഇതുവരെ നൂറില ധികം പാലങ്ങൾ നിർമിച്ചതായി അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിൽ ബുദ്ഗാം ജില്ലയിലെ നൌഗം മേഖലയിൽ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ലഷ് കർ ഇ തോയ്ബ ഭീക രർ കൊല്ലപ്പെട്ടു

ജി

ദിൽബാഗ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു

പാലക്കാട് അകത്തേത്തറ എൻ

എൻജിനിയറിങ് കോളേജ് വിദ്യാർത്ഥി പാലതോപ്പിൽ വീട്ടിൽ ടിബിൻ ടോം ആണ് മരിച്ചത് ഇന്നലെ വൈകീട്ടാണ് അപകടം കണ്ണൂർ സെൻട്രൽ ജയിലിനു സമീപം സ്കൂട്ടറിൽ ടാങ്കർലോറിയി ടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു

കൂടെയുണ്ടായിരുന്ന ഭാരൃയ്ക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയായിരുന്നു അപകടം പാലക്കാട് പറളി ഹയർസെക്കൻഡറി സ്കൂളിൽ മലറ്റിൻപർപ്പസ് മിനി സ്പോർട്സ് കോംപ്ലകസ് നിർമാണം ഇന്നാരംഭിക്കും രാവിലെ സ്കൂൾ മൈതാനത്ത് മന്ത്രി ഇ

ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയുടെ ആഭിമുഖൃത്തിൽ തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ ഇന്ന് വനിതാ ശാക്തീകരണ പരിപാടി സംഘടിപ്പി ക്കും നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ജില്ലാ മേധാവി ഡോ